സന്ദർശനം പുതുപാത വെട്ടിത്തുറന്നുതിായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ബന്ധം ഇരു രാജ്യങ്ങളില് ജനങ്ങൾക്കും ലോകത്തിനും പ്രയോജനപ്രദമെന്നും പ്രധാനമുന്ത്രി

സ്ഥിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ആഭൃന്തര മന്ത്രി അമിത് ഷാ മേഖലയിലെ സി ബി എസ്

ശങ്കരൻ അന്തരിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ സുപ്രധാന മേഖലകളിലെ സഹകരണം ഊട്ടിയുറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു

പ്രതിരോധം സുരക്ഷ എന്നീ രംഗങ്ങളിൽ സഹകരിക്കാനും സമുദ്ര ബഹിരാകാശ രംഗങ്ങളിൽ വിജ്ഞാന കൈമാറ്റത്തിനും ധാരണയായി

വിവിധ പ്രതിരോധ ക്ടർറ്റുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു

ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ട്രംപിന്റെ സന്ദർശനം വഴി സാധ്യമായതായി ട്രംപിന് നന്ദി അറിയിച്ചുള്ള ട്വിറ്റർ സന്ദേശത്തൽ പ്രധാനമന്ത്രി കുറിച്ചു ഇന്ത്യ അമേരിക്ക സഹകരണം ഇരു രാജ്യങ്ങൾക്കും ലോകത്തിനും ഗുണകരമാണ് ട്രംപും പത്നി മെലാനിയയും ഇന്ത്യൻ സംസ്കാരവും ആതിഥേയത്വവും സന്തോഷത്തോടെ സ്വീകരിച്ചു ഇന്ത്യൻ ജനതയും അവരെ സ്വീകരിച്ചുവെന്നും ശ്രീ മോദി പറഞ്ഞു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ അത്താഴ വിരുന്നുകൾ പ്രസിഡന്റ് ട്രംപും സംഘവും സ്വീകരിച്ചു അമേരിക്കയുമായി കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യയുമായി വിലയേറിയ സൌഹൃദമാണെന്ന് പ്രസിഡന്റ് ട്രംപും അറിയിച്ചു സന്ദർശനത്തിലൂടെ ഇന്ത്യൻ ജനതയുമായി കൂടുതൽ അടുക്കാനായെന്നും ട്രംപ് സൂചിപ്പിച്ചു

വുഹാനിലുള്ള ഇന്ത്യാക്കാരെയും കൊണ്ട് വിമാനം നാളെ മടങ്ങിയെത്തും

കൈയുറകൾ മുപ്പൂാവരണങ്ങൾ തുടങ്ങിയ ആരോഗ്യ സുരക്ഷാ സാമഗ്രികളാണ് ഇത്ത്യ അയച്ചത്

ബംഗ്ലാദേശില്ല് കാക്കയിൽ ഇന്നലെ നടന്ന ബിംസ്റ്റെക്ക് ഊർജ്ജ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഊർജ്ജ ഉപദേഷ്ടാവ് ഡോ

അംഗരാജ്യങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഗ്രിഡ് പദ്ധതി ഗുണകരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തടസ്സരഹിതമായ ഊർജ്ജ വിതരണത്തിലൂടെ ഊർജ്ജ വിലയിൽ കുറവുണ്ടാകുമെന്നും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നും ശ്രീ

ഇന്നലെ ജമ്മു ഡിവിഷനിലെ ഉധംപൂരിൽ സർക്കാർ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു

ഉത്തർപ്രദേശിന് ശേഷം ഏകീകൃത ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം ആരംഭിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ് ഭോപാലിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് വാഹന രജിസ്ട്രേഷൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉൾപ്പെട്ട ഏകീകൃത കാർഡ് വിതരണം ചെയ്തു ഏകീകൃത ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷൻ കാർഡും വ്യാപിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത്

കഴിഞ്ഞ വർഷം ഇതേ ദിവസം പുലർച്ചെയാണ് ബിട്ലർകോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ ഇന്ത്യൻ വ്യൂട്ടുസേന ആക്രമിച്ചത് ഖൈബർ പഷ്തൂൺ പ്രവിശ്യയിലെ ഭീകരപരിശീലന കേന്ദ്രം ഇന്ത്യ ആക്രമിച്ച് തകർത്തു നിരവധി ഭീകരരും പരിശീലനകേന്ദ്രങ്ങളും സംവിധാനങ്ങളും ആക്രമണത്തിൽ തകർന്നു അതേ ദിവസം രാജസ്ഥാനിലെ ചുരുവിൽ രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു

രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനും രാഷ്ട്രീയ കക്ഷികളോട് ശ്രീ

വ്യാജ പ്രചാരണങ്ങളിൽ നിന്നു വിട്ടുനിൽക്കാൻ ജനങ്ങളോടും മാധ്യമങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒഴിവാക്കണമെന്നും ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിക്കരുതെന്നും ശ്രീ

വൃജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഫലപ്രദമായിരുന്നെന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

ഡൽഹി പോലീസിനു പുറമേ സി

എഫും ദ്രുതക്ർമ്മ സേനയുടെയും നിയന്ത്രണത്തിലാണ് പ്രശ്നമേഖല

അക്രമവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ എണ്ണം പത്തായി

മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത് ഹബീബുള്ള സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ഷഹീൻ ബാഗിൽ നിന്നും പ്രക്ഷോഭകരെ ഒഴിപ്പിക്കണമെന്ന ഹർജിയും ഇന്ന് പരിഗണിക്കും

ബി എസ്

ചൈനയിലെ വിദഗ്ധരുമായി സംസാരിച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊറോണ വൈറസ് ബാധയു്ടെ കാര്യത്തിൽ ജാഗരൂഗരായിരിക്കാൻ അദ്ദേഹം ലോക രാജ്യങ്ങള്ളോട് ആഹ്വാനം ചെയ്തു

പത്ത് വർഷം കോഴിക്കോട് ഡിസിസി പ്രസിഡന്റായും കെ പി സി സി ജനറൽ സെക്രട്ടറിയായും യു ഡി എഫ് ജില്ലാ ചെയർമാനായും പ്രവർത്തിച്ചു കെ എസ് യു വിലൂടെ പൊതുരംഗത്ത് വന്ന പി

സംസ്കാരം നാളെ രാവിലെ കോഴിക്കോട് നടക്കും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടത്താനിരുന്ന പാർട്ടിപരിപാടികൾ മാറ്റിവെച്ചു